വടകരയിൽ കെ

ഔദ്യോഗിക പ്രഖ്യാപനം വൈകീട്ടോടെ ബിജെപി സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്നുണ്ടാകും

ശൈലജ നിർദ്ദേശം നൽകി ലോക്സഭയിലേക്ക് രണ്ടാംഘട്ട തിരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പുറ പ്പെടുവിച്ചു

കേരളത്തിലെ ശേഷിക്കുന്ന നാല് സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും വടകരയിലെയും വയനാട്ടി ലെയും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയായതോടെ ഔദ്യോ ഗിക പ്രഖ്യാപനം മാത്രമാണ് അവശേഷിക്കുന്നത് ഡിസിസി പ്രസിഡന്റ് കൂടിയായ ടി സിദ്ദിഖ് വയനാട്ടിലും കെ മുരളീധരൻ വടകരയിലും മത്സ രിക്കുമെന്ന വിവരം പുറത്തുവന്നുകഴിഞ്ഞു ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും മത്സരിക്കാൻ ഏകദേശ ധാരണയായി ഇതോടെ യു ഡി എ ഫിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് പൂർത്തിയായി വടകരയിൽ കെ

മുരളീധര നുമായി ഇക്കാര്യം സംസാരിച്ചതായി കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഡൽഹിയിൽ പറഞ്ഞു

മുരളീധറൻ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഹൈക്കമാന്റി നോട് ആവശ്യപ്പെടുമെന്ന് മുല്ലപ്പള്ളി മാധ്യമങ്ങളെ അറിയിച്ചു പ്രഖ്യാ പനം ഇന്നുതന്നെ ഉണ്ടായേക്കുമെന്നാണ് വൃക്തമായ സൂചന സ്ഥാനാർത്ഥി നിർണ്ണയം വൈകിയത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധി ക്കില്ലെന്നും കോൺഗ്രസ് മികച്ച വിജയം നേടുമെന്നും കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു പാർട്ടിയ്ക്കുവേണ്ടി ശക്തമായ പോരാട്ടം നടത്താൻ താൻ തയ്യാറാണെന്നും വടകര മണ്ഡലത്തിൽ മത്സരിക്കാൻ സന്നദ്ധത നേതൃത്വത്തെ അറിയിച്ചതായും അദ്ദേഹം മാധ്യമപ്രവർത്തക രോട് പറഞ്ഞു സംസ്ഥാനത്ത് വടകര ഉൾപ്പെടെ നാല് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി കളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് യു

എഫ് കൺവീനർ ബെന്നി ബെഹ നാൻ വൃക്തമാക്കി

എം

ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച പ്രൊഫ

തോമസ് യു

ലോക്സഭാതെരഞ്ഞെടുപ്പിൽനിന്ന് ഒഴിവാക്കിയ തിലെ വേദന കൂടിക്കാഴ്ചയിൽ അറിയിച്ചതായും സ്ഥാനങ്ങളല്ല അംഗീ കാരമാണ് ആഗ്രഹിച്ചതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമായ താൻ പാർട്ടിയ്ക്കു വേണ്ടി പ്രവർത്തിക്കുമെന്നും കെ

തോമസ് അറിയിച്ചു

ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീ ക്കറുടെ മരണത്തെ തുടർന്ന് ഇന്നലെ മാറ്റിവെച്ച പാർട്ടി കേന്ദ്ര തെരഞ്ഞെ ടുപ്പ് സമിതി യോഗം ഇന്ന് വൈകീട്ട് ന്യൂഡൽഹിയിൽ ചേരും

പാർട്ടി സംസ്ഥാന ഘടകം നൽകിയ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇന്നത്തെ യോഗ ത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് ബിജെപി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന പത്തനംതിട്ടയിൽ സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻപിള്ളയെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് റിപ്പോർട്ട്

വർഗ്ഗീയതയ്ക്കെതിരെ ചിന്തിക്കാൻ നേതൃത്വം അണികളോട് ആവശ്യപ്പെടുന്നില്ലെന്നും മുഖ്യ മന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്ത് ഇ

അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗോവധത്തിന്റെ പേരിലെ അക്രമ ങ്ങൾക്ക് കോൺഗ്രസ് പിന്തുണ നൽകുകയാണ് നേതാക്കൾ എപ്പോൾ മറുകണ്ടം ചാടുമെന്ന് പറയാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു ബിജെപിയ്ക്കും കോൺഗ്രസ്റ്റിനും ബദൽ ഇടത് പക്ഷമാണെന്ന സ്ഥിതി വിശേഷം രാജ്യത്തുണ്ടെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടി യേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഇടത്പക്ഷത്തിന്റെ അംഗബലം പാർല മെന്റിൽ വർദ്ധിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

പാർലമെന്റ് അസംബ്ലി മണ്ഡലം കൺവെൻഷ നുകൾക്ക് ശേഷം ബൂത്ത്തല കൺവെൻഷനുകൾ അവസാന ഘട്ടത്തി ലാണ്

ഹരിത പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കാൻ എല്ലാ രാഷ്ട്രീയപാർട്ടികളോടും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടു

തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റുകളിലും കർണ്ണാ ടക ബീഹാർ ആന്ധ്രപ്രദേശ് തെലുങ്കാന ഗുജറാത്ത് എന്നിവിടങ്ങളിലെ പകുതിയിലേറെ മണ്ഡലങ്ങളിലും പ്രണശക്തിയാകും വിധിനിർണ്ണയിക്കുക എന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പു കമ്മീഷന്റെ നടപടി ഇവിടെ മുൻകരുതലായി കമ്മീഷൻ രണ്ടുവീതം പ്രത്യേക നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട് ലോക്സഭാ തെർഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ അണ്ണാഡിഎംകെയും ഡിഎം

യും പ്രകടന പത്രികകൾ പ്രസിദ്ധീകരിച്ചു

ഭരണത്തിലെത്തിയാൽ എല്ലാ വിദ്യാഭ്യാസ വായ്പകളും എഴുതിത ള്ളുമെന്നും നീറ്റ് പരീക്ഷ ഉപേക്ഷിക്കുമെന്നും ഡി എം

യുടെ പ്രക ടന പത്രികയിൽ പറയുന്നു സഭാതർക്കം പരിഹരിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയുടെ മധ്യസ്ഥ ചർച്ചയിൽനിന്ന് ഓർത്തഡോക്സ് വിഭാഗം വിട്ടുനിൽക്കുന്നു ഇന്നത്തെ ചർച്ച പ്രഹസനമാണെന്നും സുപ്രീംകോടതി വിധി നടപ്പാക്കുകയാണ് വേണ്ടതെന്നും വേണ്ടപ്പെട്ടവർ വ്യക്തമാക്കി

ദുരന്ത നിവാരണവും അടിസ്ഥാന സൌകര്യ മേഖലയുടെ സംരക്ഷണവും സംബന്ധിച്ച അന്താരാഷ്ട്ര ശില് പശാലയ് ക്ക് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കമാകും ദുരന്ത ലഘൂകരണത്തിനായി യു

ഓഫീസിന്റെ സഹകരണ ത്തോടെ ദേശീയ ദുരന്ത നിയന്ത്രണ അതോറിറ്റിയാണ് രണ്ടു ദിവസത്തെ ശില്പശാല സംഘടിപ്പിക്കുന്നത് സുപ്രധാന അടിസ്ഥാന ഘടനാ മേഖലയിൽ ദുരന്ത പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാനുള്ള മികച്ച മാതൃകകൾ കണ്ടെത്തുകയാണ് ലക്ഷ്യം ഗതാഗതം ഊർജ്ജം വാർത്താവിനിമയം ജലസംരക്ഷണം എന്നീ മേഖലകളുടെ സംരക്ഷണത്തിനായി ഗവേഷണം പ്രോത്സാഹിപ്പി ക്കാനുള്ള മാർഗ്ഗങ്ങൾ ശില്പശാല ചർച്ച ചെയ്യും കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് അന്താരാഷ്ട്ര ശില്പശാല ആദ്യമായി സംഘടിപ്പിച്ചത്

നടപ്പാക്കുന്ന കാര്യത്തിൽ യോഗ്പതീരുമാനമെടുത്തേക്കും

മാതൃകാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റചട്ടം നിലനിൽക്കുന്ന ് സാഹചര്യത്തിൽ നികുതി നിരക്കുകളിൽ മാറ്റം വരുത്തുന്നത് യോഗം ചർച്ചചെയ്യില്ല

ഉദ്ഘാടന മത്സരത്തിൽ നിലവിൽ ചാമ്പ്യൻമാരായ ചെന്നൈ സൂപ്പർ കിങ്ങ്സ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേ ഴ്സിനെ നേരിടും രാത്രി എട്ടിന് ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം കഴിഞ്ഞ വർഷത്തെ എട്ട് ടീമുകളാണ് ഇത്തവണയും മത്സരത്തിന്

എന്നാൽ അനീസിന് ഏഷ്യൻ യോഗൃതാ മാർക്ക് മറികടക്കാൻ സാധിച്ചില്ല

വെസ്റ്റ്നൈൽ വൈറസ് ബാധയ്ക്കെതിരെ നടപടി ഊർജ്ജിതമാക്കാൻ മന്ത്രി കെ

ശൈലജ ആരോഗൃവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദശം നൽകി വെസ്റ്നൈൽ വൈറസ് ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശു പത്രിയിൽ മലപ്പുറം സ്വദേശിയായ ആറ് വയസ്സുകാരൻ മരിച്ചതിനെതു ടർന്നാണ് നടപടി

വെസ്റ്റ്നൈൽ ലക്ഷണവുമായി എത്തുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്

എസ്

ടി സിയ്ക്ക് നൽകുന്ന ഡീസൽ വിലയിൽ കുറവ് വരു ത്താൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തീരുമാനിച്ചതായി റിപ്പോർട്ട്

ടി സി മുൻ എം

ടോമിൻ തച്ചങ്കരിയാണ് പ്രില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഐ ഒ സി

വായ്പാ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായ വിവാദ വജ്ര വ്യാപാരി നീരവ് മോദിയുടെ അറസ്റ്റിനായി സി ബി ഐ യുടെയും എൻഫോഴ്സ് മെന്റ് ഡയറക്ടറേറ്റിന്റെയും സംയുക്ത സംഘം താമസിയാതെ ലണ്ടനിലേയ്ക്ക് പോകും സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ പേരിൽ നീരവ് മോദിയെ വിട്ടുകിട്ടണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇയാൾക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്